ഐ ആറുകൾ രജിസ്റ്റ്ൽ ചെയ്തു

നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും നിരവധി കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ സാധ്യത

ടെക്സ്റ്റൈൽസ് മിഷൻ സ്ഥാപിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി

സാവിത്രി ഭായ് ഫുലെ സർവകലാശാല മുന്നിൽ

മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് പൊലീസും സുരക്ഷാ ഏജൻസികളും പ്രയത്നിച്ചുവരികയാണെന്ന് അദ്ദേഹം ട്വിറ്ററിലൂടെ അറിയിച്ചു ശാന്തിയും സൌഹാർദവും രാജ്യത്തിന്റെ മുഖമുദ്രയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്ത് സമാധാനവും സൌഹാർദവും നിലനിർത്താൻ ആഹ്വാനം ചെയ്തു മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് പ്രധാനമാണെന്നും ശ്രീ

അക്രമങ്ങൾ ഉണ്ടായ വടക്കു കിഴക്കൻ ഡൽഹിയിലെ പ്രദേശങ്ങൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സന്ദർശിച്ചു മൌജ്പൂർ മേഖലയിലെ സുരക്ഷാ സ്ഥിതി വിലയിരുത്തിയ അദ്ദേഹം ജനങ്ങളുമായി സംവദിച്ചു പിന്നീട് ആഭ്യന്തരമന്ത്രി അമിത് ഷായെ ശ്രീ

അനിഷ്ട സംഭവങ്ങളൊന്നും ഇന്നല്ലൂ പുതുതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ടെന്നും ഡൽഹി പോല്ടീസ് പ്ലക്താവ് എം

വിവിധ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ പോലീസിന്റെ ഫ്ളാഗ് മാർച്ചും ഇന്നലെ നടന്നു

വടക്കു കിഴക്കൻ ഡൽഹിയിൽ ഉണ്ടായ ദൌർഭാഗ്യകരമായ സംഭവങ്ങൾ പരിശോധിക്കാനും കോടതി നിർദ്ദേശം നൽകി ഷഹീൻബാഗ് പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവെയായിരുന്നു ഈ പരാമർശം പൌരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അക്രമങ്ങൾ സംബന്ധിച്ച് സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ കോടതി വിസമ്മതിച്ചു

അതേസമയം പ്രതിഷേധക്കാർക്ക് പൊതുവഴികൾ തടസ്സപ്പെടുത്താൻ യാതൊരു അധികാരവുമില്ലെന്നും കോടതി നിരീക്ഷിച്ചു

പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് മുതിർന്ന അഭിഭാഷകൻ സഞ്ജയ് ഹെഗ്ഡെയും അഭിഭാഷക സാധന രാമചന്ദ്രനും സമർപ്പിച്ച റിപ്പോർട്ടുകൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ബെഞ്ച് അറിയിച്ചു

ബി

ഈ പന്ത്രണ്ടാം ക്ലാസ്സ് പരീക്ഷകൾ മാറ്റിവയ്ക്കും പുതുക്കിയു പ്പർപ്പക്ഷാ തീയതി വൈകാതെ അറിയിക്കുമെന്ന് സി ബി എസ്

വടക്കു കിഴക്കൻ മേഖ്വല് ഒഴ്ചികെയുള്ള പ്രദേശത്ത് നിശ്ചയിച്ച തീയതികളിൽ പരീക്ഷ നടക്കുള്ള

നാല് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ വൈകുന്നേരമാണ് യു വിൻ മിന്റ് ന്യൂഡൽഹിയിൽ എത്തിയത് മ്യാൻമാർ പ്രഥമ വനിത ഡോ ചൊ ചൊ അദ്ദേഹത്തോടൊപ്പമുണ്ട് ചർച്ചയ്ക്ക് ശേഷം നിരവധി കരാറുകളിൽ ഒപ്പുവയ്ക്കുമെന്നാണ് പ്രതീക്ഷ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായും ഇന്ന് വൈകിട്ട് മ്യാൻമാർ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും

ജയശങ്കർ ഇന്നലെ ന്യൂസിലന്റ് വിദേശകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി വാണിജ്യം പ്രതിരോധം സുരക്ഷ തുടങ്ങിയ രംഗങ്ങളിൽ കൂടുതൽ ആഴത്തിൽ സഹകരിക്കാൻ ധാരണയായി ന്യൂസിലന്റ് ഉപപ്രധാനമന്ത്രി കൂടിയായ വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സ് പരമാധികാരം മേഖലാ അധികാരം അന്താരാഷ്ട്ര നിയമം സമാധാനവും സുസ്ഥിരതയും തുടങ്ങിയ കാര്യങ്ങളിൽ പരസ്പര ബഹുമാനത്തിന്റെ ആവശ്യകത എടുത്തുകാട്ടി വാണിജ്യമന്ത്രി ഡേവിഡ് പാർക്കറും നാളെ വരെ നീളുന്ന സന്ദർശനത്തിൽ പങ്കാളിയാകുന്നുണ്ട് രാഷ്ട്രീയം സാമ്പത്തികം പ്രതിരോധം സുരക്ഷ ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കറുമായും ഇന്ന് വിൻസ്റ്റൺ പീറ്റർ ചർച്ച നടത്തുന്നുണ്ട്

മന്ത്രിസഭ യോഗത്തിന്ട് ശേഷം തീരുമാനങ്ങൾ വിശദീകരിക്കവെ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദ്ദേക്കർ അറിയിച്ചതാണ് ഇക്കാര്യം വാടക ഗർഭപാത്ര ബിൽ സംബ്ഷണ്ട്രിച്ച് സെലക്ട് കമ്മിറ്റിയുടെ ശുപാർശകളെല്ലാം കേന്ദ്രമന്ത്രിസഭ അ്ഗ്ീകരിച്ചതായി വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തൂ ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അറിയിച്ചു

സവാളയ്ക്ക് ആഭ്യന്തരവില കുതിച്ചുയർന്നപ്പോഴാണ് ആറ് മാസം മുൻപ് കയറ്റുമതി നിരോധനം കൊണ്ടുവന്നത് വിളവെടുപ്പ് കാലമായതിനാൽ നിരോധനം പിൻവലിച്ചത് സവാള കർഷകർക്ക് ഗുണകരമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അദ്ധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിതല സമിതിയാണ് തീരുമാനമെടുത്തത് സവാളയുടെ മിനിമം കയറ്റുമതി വില നിർണയവും മന്ത്രിതല സമിതി ചർച്ച ചെയ്തു

ബിജെപി അദ്ധ്യക്ഷ പദവി ഏറ്റെടുത്ത ശേഷം ആദ്യമായാണ് അദ്ദേഹം ജന്മനാടായ ഹിമാചൽപ്രദേശിൽ എത്തുന്നത് ഇന്ന് സോളനും ഷിംലയും സന്ദർശിക്കുന്ന ശ്രീ

നദ്ദയ്ക്ക് വൻ സ്വീകരണം ഒരുക്കുന്നുണ്ട് വൈകിട്ട് നാലിന് ഷിംലയിലും സ്വീകരണം നൽകും ബിജെപി നിയമസഭാ കക്ഷി കോർ യോഗത്തിലും ശ്രീ

ചൈന ഹോങ്കോംഗ് തായ്ലൻഡ് സിംഗപ്പൂർ ജപ്പാൻ ദക്ഷിണ കൊറിയ വിയറ്റ് നാം നേപ്പാൾ ഇന്തോനേഷ്യ മലേഷ്യ എന്നിവയ്ക്ക് പുറമേ ഇറാൻ ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്ന് നേരിട്ടുള്ള ഫ്ളൈറ്റുകളിലൂടെ വരുന്ന യാത്രക്കാരെ കൂടി പരിശോധിക്കാൻ തീരുമാനിച്ചു

ബാക്കിയുള്ള ഭീകരരെ കൂടി ഇല്ലാതാക്കണമെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥരോട് എടുത്തുപറഞ്ഞു കിഷ്ത്വാർ ജില്ലയിലെ കരസേന അർധ സേനാ വിഭാഗങ്ങളുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു ഡി ജി

രാജ്യത്ത് ആവശ്യമായ ഊർജ്ജ ലഭ്യതയുണ്ടെങ്കിലും പ്രസരണ വിതരണ സൌകര്യം കുറഞ്ഞതിനാൽ ജമ്മു കശ്മീരിൽ പ്രതിസന്ധിയുണ്ട് ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ ജി

മുർമുവും പങ്കെടുത്ത അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ഉടൻ പൂർത്തിയാവുന്ന പകൽദൂൾ കിരു ക്വാർ ഊർജ്ജപദ്ധതികളിലൂടെ ജമ്മു കശ്മീരിന്റെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമാവുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

വനിതാ വിഭാഗത്തിൽ മഹർഷി ദയാനന്ദ് സർവകലാശാലയിലെ പ്രിയങ്ക തക്രനാണ് സ്വർണം

പി മാരും സ്വീഡൻ ഭരണസമിതി അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് സംഘം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ അശോക് ലാവാസ സുശീൽ ചന്ദ്ര തുടങ്ങിയവരുമായും സംഘം ഇന്നലെ വൈകിട്ട് കൂടിക്കാഴ്ച നടത്തി ഭരണഘടന സമിതി അദ്ധ്യക്ഷനും എം പി യുമായ കാരിൻ എൻസ്ട്രോമാണ് പ്രതിനിധി സംഘത്തെ നയിക്കുന്നത്